ഡോക്ടർമാരുടെ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ മദ്യം നൽകാമെന്ന സംസ്ഥാന സ്ക്ർക്കാ്ർ ഉത്തരവ് ഹൈക്കോടതി മൂന്നാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു കോവിഡ് ബാധിച്ച് മരിച്ച പോത്തൻകോട് സ്വദേശിയുമായി സമ്പർക്കത്തിൽ വ്ന്ന് എല്ലാവരേയും നിരീക്ഷണത്തിലാക്കിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

കോവിഡ് പശ്ചാത്തലത്തിൽ വിമ്പിൾടൺ ടെന്നീസ് ടൂർണമെന്റ് മാറ്റിവച്ചു

കോവിഡ് ക്രതിരോധ നടപടികളെ കുറിച്ചും അതിഥി അതാഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ചും നിസാമുദ്ദീൻ മതസമ്മേളനത്തിൽ പങ്കെടുത്തവരെ കണ്ടെത്തുന്നതിനെ കുറിച്ചും മുഖ്യമന്ത്രിമാരുമായി ചർച്ച ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്

മൂന്നാഴ്ചത്തേക്കാണ് ഉത്തരവ് സ്റ്റേ ഏച്ചിയ്തിട്ടുള്ളത് ഇടക്കാല നടപടിയെന്ന നിലക്കാണ് ഹൈക്കേട്ടതി സ്റ്റേ അനുവദിച്ചിട്ടുള്ളത്

വൈറസ് ബാധിച്ച് മരിച്ച പോത്തൻകോട് സ്വദേശിയുമായി സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ തുടരുകയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഇതിൽ ഒൻപത് പേർ വിദേശത്തുനിന്ന് എത്തിയ മലയാളികളും ബാക്കിയുള്ളവർ ഇവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുമാണ്

മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലർ അസഹിഷ്ണുതയോടെയുള്ള പ്രചരണംക്ക അഴിച്ചുവിടുന്നുണ്ടെന്നും രോഗകാലത്ത് വർഗീയ പ്പിൾവെടുപ്പിന് ആരും തുനിഞ്ഞിറങ്ങേണ്ടെന്നും മുഖ്യമന്ത്രി പ്രീണ്റായി വിജയൻ ഡൽഹി നിസാമുദ്ദീനിലെ തബ്ലീഗ് ജമാഅ്ത്തിൽ പങ്കെടുത്തവർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ നടക്കുന്ന വർഗീയ പ്രചരണങ്ങൾക്കെതിരെയായിരുന്നു ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്

തബ് ലീഗ് പങ്കെടുത്തവരെക്കുറിച്ചും അവരുടെ മതത്തെക്കുറിച്ചും അസഹിഷ്ണുതയോടെയുള്ള പ്രചരണം സാമൂഹികമാധൃമങ്ങളിൽ വ്യാപകമായി നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

സർക്കാർ ജീവനക്കാർക്കായുള്ള സാലറി ചലഞ്ചിൽ പാർട്ട് ടൈം ജീവനക്കാരെയും കരാർ ജീവനക്കാരെയും ഭാഗമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദേശീയപാതകളുടെ ചുമതല കേന്ദ്ര സർക്കാരിനാണെന്നും ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് അതിലൂടെ യാത്ര നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളെ കടത്തി വിട്ടില്ലെങ്കിൽ വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാവും

ഡോക്ടർമാർ സ്റ്റാഫ് നെഴ്സ് ഫാർമസിസ്റ്റ് ലാബ് ടെക്നിഷ്യൻ ജെ

എച്ച്

എച്ച് ഐ റേഡിയോഗ്രാഫർ ടെക്നിഷ്യൻമാർ അറ്റൻർമാർ ഫീൽഡ് ജീവനക്കാർ എന്നിവരോടാണ് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്

ഇദ്ദേഹത്തിന് വൈറസ് ബാധയില്ലെന്നാണ് കോഴിക്കോട് ലാബിൽ നിന്നുളള പരിശോധന ഫലം

തിങ്കളാഴ്ച രാവിലെയാണ് ഇദ്ദേഹം മരിച്ചത് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്

ഏതെങ്കിലും പ്രത്യേക സ്മയത്ത് തുറന്ന് പ്രവർത്തിക്കുവാനുള്ള അധികാരം ഒരു കടകൾക്കും നൽകിയിട്ടില്ലെന്നും കളക്ടർ അറിയിച്ചു ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു

ഇയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

കേരള കർണാടക അതിർത്തി തുറക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണ്ടി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ

ഇവർക്കാർക്കും രോഗ ലക്ഷണങ്ങളില്ല ഇന്നലെ ഫലം വന്ന എട്ടു സാമ്പിളുകളും നെഗറ്റീവാണ് കോവിഡ് തൃശ്ശൂർ തൃശൂർ ജില്ലയിൽ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി രോഗം സ്ഥിരീകരിച്ചയാളുടെ ഭാര്യ മകൻ എന്നിവർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്

ഇവരിൽ ഒരാൾ ഡൽഹിയിൽ മരിച്ചിരുന്നു

ഇടുക്കി തൊടുപുഴ ജില്ലാ ആശുപത്രികളും അടിമാലി കട്ടപ്പന പീരുമേട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രികളിലും ചിത്തിരപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും സ്രവ പരിശോധനയ്ക്ക് സൌകര്യമൊരുക്കിയതായി ഡി

നിസാമുദ്ദീനിലുണ്ടായ മതസമ്മേളനം രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായി അരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു കോറോണ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോക്കഡൌൺ ശക്തമായി പാലിക്കാ്റ്റൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിട്ട് ്ചില സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌണിന് ഇളവ് വരുത്തൂന്നത്തായി ശ്രദ്ധയിൽപ്പെട്ടതായും കേന്ദ്ര ആഭൃന്തര മന്ത്രി സംസ്ഥാന്ന് ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ പറയുന്നു

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റിവെച്ചതിനാൽ ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസുകളിലെ എല്ലാ കുട്ടികളെയും ജയിപ്പിക്കാൻ സി ബി എസ്

കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദേശത്തെ തുടർന്നാണ് നടപടി

വ്യാജ വാർത്ത വ്യാജ വാർത്തകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ജനങ്ങൾക്ക് വിവരങ്ങൾ പരിശോധിച്ചറിയുന്നതിനായി കേന്ദ്രം പ്രത്യേക വെബ് പോർട്ടൽ സജ്ജീകരിക്കുന്നുണ്ട് ഈ മാതൃകയിൽ സംസ്ഥാനങ്ങളും സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച ഭീതി മൂലം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടപലായനം ചെയ്യാന്നിടയായത് സംബന്ധിച്ച ഹർജി പരിഗണിക്കവേ സുപ്രീം കൃക്കോടതിയും വിഷയം ഗൌരവകരമാണെന്ന് നിരീക്ഷിച്ചിരുന്നു

ഐ ലോക്ഡൌൺ കാലത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ രാജ്യത്തുടനീളം തടസ്സ്മീല്ലാതെ ഗോതമ്പും അരിയും വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി

രോഗബാധിതരുടെ എണ്ണം ഒമ്പത് ലക്ഷം കവിഞ്ഞിട്ടുണ്ട്

രണ്ടാം ്ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായാണ് വിമ്പിൾടണ്ണൂ മാറ്റിവയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്